ആഭ്യന്തര വിമാന സർവ്വീസുകൾ പുനരാരംഭിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ്പ് സിംഗ് പുരി

പുതിയ രോഗബാധിതർ മറ്റു സ്റ്സ്കാ്നങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തിയവരാണെന്നുംപരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും അസം ആരോഗ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ ട്വിറ്ററിൽ വ്യക്തമാക്കി

നിലവിൽ രണ്ടുപേരാണ് ചികിത്സയിലുള്ളത്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു മാസം മുൻപാണ് ആഭ്യന്തര സർവീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചത്

വോയിസ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ വിശാഖപട്ടണം വിമാനത്താവളങ്ങളിൽ നാളെയും പശ്ചിമബംഗാളിൽ വ്യാഴാഴ്ചയുമാണ് സർവീസുകൾ പുനരാരംഭിക്കൂക വിമാനങ്ങളുടെ എണ്ണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

എന്നാൽ ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് ഇത് ബാധകല്ലെന്നൂം കേന്ദ്ര വ്യോമയാന മന്ത്രി ് ടിറ്ററിൽ കുറിച്ചു മഹാരാഷ്ട്രയിലെ മുംബൈയിലും വിമാന സർവീസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വൃക്തമാക്കി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും വിമാന സർവീസുകൾക്കായി പൂർണസജ്ജമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ അരവിന്ദ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

വയോജനങ്ങൾ ഗർഭിണികൾ കൂട്ടികൾ നിലവിൽ വിമാനയാത്ര ഒഴിവാക്കണമെന്നും അറിയിപ്പിൽ ്പറയുന്നു

കാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുട്ടു അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ് ദൂരന്ത നിവാരണ സ്മിത്യിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്

കുൽഗാം ജില്ലയിലെ ഹഞ്ചിപ്പോര മേഖലയിൽ രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ

കണ്ണൂർ ജില്ലയിലെ രണ്ട് റിമാന്റ് തടവുകാർ ഉൾപ്പെടെ ആറ് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്

ഇടുക്കി ജില്ലയിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു

അടുത്തമാസം എട്ടുവരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ രാജ്യത്ത് എത്തിച്ചേരും

അ ഒരു റിപ്പോർട്ട് വോയിസ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ ഒരു ലക്ഷത്തോട് അടുക്കുകയാണ്

രോഗികളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം മൂന്നര ലക്ഷം കവിഞ്ഞു

റഷ്യയിൽ ഒൻപതിനായിരത്തോളം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു

ഇറാനിൽ രണ്ടായിരത്തിൽ അധികം പേർക്കാണ് പൂതുതായി രോഗം സ്ഥിരീകരിച്ചത്

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അറിയിച്ചു

കൊറോണ വൈറസ് സംബന്ധിച്ച് ആശങ്ക പരത്തുന്ന വാർത്തകൾ പ്രപ്പര്യ്പ്പിക്കുന്നതിനെതിരെയാണ് മുന്നറിയിപ്പ്

എസ് എൽ സി

എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസവകുപ്പ് അധ്യാപകർക്ക് നിർദേശം നൽകിയിട്ടുണ്ട്